റഫാൽ ആയുധ ഇടപാട് ്ള്ൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർമെന്റിൽ ഭരണ പ്പതിപക്ഷ ബഹളം ഇരുസഭകളും ഇന്നത്തേയ്ക്ക് പിരിഞ്ഞു്

നവഭാരത സൃഷ്ടിക്കുള്ള സമഗ്ര വികസന രൂപരേഖ നിതി ആയോഗ് പുറത്തിറക്കി

എക്സ് മീഡിയാ അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം എൻഫോഴ്സ്മെന്റ് വിഭാഗം മുമ്പാകെ ചോദൃം ചെയ്യലിന് ഹാജരായി

ഉപഗ്രഹ്ത്തിന്റെ കാലാവധി എട്ട് വർഷമാണ്

ആർ ഒ

റഫാൽ യുദ്ധ വിമാന ഇടപാടിൽ സംയുക്ത പാർലമെന്ററി സമിതിതല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇരു സഭകളിലും ഇന്നും പ്രതിസന്ധി സൃഷ്ടിച്ചത്

വോയ്സ് ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി

കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാനുദ്ദേശിക്കുന്ന മെക്കേഡത്തു ഡാമിനെപ്പറ്റി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നൽകിയ അനുവാദം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ഐ എ

എം

ആന്ധ്രാപ്രദേശിന് സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് റ്റി ഡി പിയും ആവശ്യപ്പെട്ട് റഫാൽ വിഷയത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണ്ടുങ്ങൾക്കെതിരെ ചില ബി ജെ

അംഗങ്ങൾ മുദ്രാവാക്യം മുഴുക്ക്കി തുടർന്ന് ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചു

തയ്യാറാണെന്നായിരുന്നു ആഭ്യന്തരമന്തി രാജ്നാഥ് സിംഗിന്റെ നിലപാട് ശൂന്യവേളികൊണ്ടു വരാനുള്ള സ്പീക്കർ സുമിത്രാ മഹാജന്റെ ശ്രമവും ്ബഹളത്തെ തുടർന്ന് ഫലം കണ്ടില്ല

റഫാൽ അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭാ നടപടികളും തടസ്സപ്പെട്ടു

കാവേരി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യപ്പെട്ട് എ

എ

എം

എം

റഫാൽ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്നും എന്നാൽ സഭാ നടപടികൾ കോൺഗ്രസ് തടസ്സപ്പെടുത്തുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി വിജയ് ഗോയൽ കുറ്റപ്പെടുത്തി

ഈ മാർശ്ഗത്തിലൂടെ അച്ഛനാകുന്നത് അസാന്മാർഗ്ഗികവും വാ്ണിജ്യതാൽപ്പര്യം മുൻനിർത്തിയുള്ളതുമാണെന്ന് കണ്ടതിനെതുടർന്നാണ് നടപടി ദേശീയ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സറോഗസി ബോർഡുകൾക്ക് വിഷയത്തിൽ യുക്തമായ തീരുമാനമെടുക്കാം കുഞ്ഞ് പിറക്കാൻ സാധ്യതയില്ലാത്ത ദമ്പതികൾക്ക് വാടക ഗർഭപാത്രം വഴിയുള്ള മാർഗ്ഗം സ്വീകരിക്കാമെന്നും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ദമ്പതികൾ ഇരുവരും ഇന്ത്യൻ പൌരത്വം ഉള്ളവരും വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷം പൂർത്തിയായവരും ആയിരിക്കണം വാടക ഗർഭപാത്രം നൽകുന്നത് അടുത്ത ബന്ധുവായിക്കണമെന്നും സ്വന്തം കുഞ്ഞിന്റെ മാതാവായിരിക്കണമെന്നും ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നു

സാമ്പത്തിക പരിഷ്ക്കരണ നടപടികളിൽ സാമൂഹിക അവബോധം അത്യന്താപേക്ഷിതമാണമെന്ന് വികസന രേഖ പുറത്തിറക്കവേ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ഏല്ലാവിഭാഗം ജനങ്ങളുടെയും ഉയർച്ച മുൻനിർത്തിയുള്ള് വകസന തന്ത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്

വിദൂരസ്ഥലങ്ങളിലുള്ള സഭാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ എം

എസ് എഫ് ജവാന് ജീവഹാനി സംഭവിച്ചു നിരവധി പേർക്ക് പരിക്കുണ്ട് സാംബ ജില്ലയിലെ അതിർത്തി ഔട്ട്പോസ്റ്റിൽ ഇന്ന് വൈകിട്ടാണ് അപ്രതീക്ഷിത സ്ഫോടനമുണ്ടായത്

പൊട്ടിത്തെറി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ലെന്ന് ബി

എഫ് വക്താവ് പറഞ്ഞു

ചിദംബരം എൻഫോഴ്സ്മെന്റ് വിഭാഗം മുമ്പാകെ ചോദ്യം ചെയ്യലിനായി ഹാജരായി

വി ഐ

ബി ഐ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെത്തുടർന്നാണ് മിഷേലിനെ ഇന്ന് പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറിന് മുമ്പിൽ ഹാജരാക്കിയത് മിഷേലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ശനിയാഴ്ചവരെ നീട്ടിവെയ്ക്കാനും കോടതി ഉത്തരവിട്ടു

എ ഇ യിൽ അറസ്റ്റിലായ മിഷേലിനെ ഈ മാസം നാലിനാണ് ഇന്ത്യയിലെത്തിച്ചത്

ബി ഐ കസ്റ്റഡിയിലാണ്

സ്റ്റേറ്റ് സെക്രട്ടറിക്ക്മക്ക് പോംപിയോ ഇന്നലെ നേപ്പാൾ വിദേശകാര്യ്മ്ട്ര്തി പ്രദിപ് ഗ്യാമാലിയുമായി വാഷിംഗ്ടൺ ഡി സി

കൂടിക്കാഴ്ച ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച പോംപിയോ നേപ്പാളുമായി ശക്തമായ പങ്കാളിത്തത്തിന് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി നേപ്പാളിന് അമേരിക്കൻ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടന്നതായി യു

സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചു

എല്ലാതരത്തിലുമുള്ള ഭീകരവാദം ലോകജനതയ്ക്ക് ഭീഷണി ഉയർത്തുന്നതാണെന്ന പൊതുവായ കാഴ്ചപ്പാടാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും പങ്കിടുന്നതെന്ന് വിദേശകാരൃമന്ത്രി സുഷമാ സ്വരാജ് പറഞ്ഞു പ്രാദേശിക അന്താരാഷ്ട്രതലത്തിലുള്ള കൂട്ടായ നടപടികളിലൂടെ തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട് ദക്ഷിണകൊറിയൻ വിദേശകാര്യമന്ത്രി ശ്രീമതി കാംഗ് ക്യൂംഗ് വായുമായുള്ള സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി

പൊതുതാൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ദക്ഷിണകൊറിയൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് വൃക്തമാക്കിയ ശ്രീമതി

ഇന്ത്യയിലെ അട്ടിസ്ഥാന സൌകര്യവികസനത്തിൽ കൊറിയ്യൻ നിക്ഷേപം സാധ്യമായുള്ള വിവിധ മേഖലകൾ ചർച്ചർ ്വിഷയമായി കൊറിയൻ മേഖലയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ശ്രീമതി സ്വരാജിനെ ധിരിപ്പിച്ചതായും ഇരുരാജൃങ്ങൾക്കിടയില്ലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായതായും ശ്രീമതി

ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള കുടിയേറ്റ കരാറിന് തന്റെ ഗവൺമെന്റ് പിൻതുണയ്ക്കുന്നതിനെതിരെ സമ്മർദ്ദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ചാൾസ് മൈക്കിൾ രാജി വെച്ചത്

വൻപ്രതിഷേധത്തിനു പുറമേ സഖ്യകക്ഷിയായ നാഷണലിസ്റ്റ് ന്യൂ ഗ്ലെമിക് അലൈൻസിന്റെ പിന്തുണ കൂടി നഷ്ടപ്പെട്ടതോടെയാണ് മൈക്കേലിന്റെ രാജി ന്യൂനപക്ഷമായി ചുരുങ്ങിയ ഭരണകക്ഷിയ്ക്കെതിരെ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷ വിമർശനം ഉയർന്നിരുന്നു അടുത്ത മെയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മൈക്കേലിന്റെ രാജിയോടെ നേരത്തെ ആകാൻ സാധ്യതയുണ്ട്

സമാധാനം മുൻനിർത്തിയുള്ള പസ്പ ഉടമ്പടിയിൽ ഇരുരാജ്യങ്ങളും നേരത്തേ ഒപ്പുവെച്ചിരുന്നു്